അദാനി ഗ്രൂപ്പിന് കൈമാറാനാവില്ലെന്ന് മൂഖ്യമന്ത്രി ഇക്കാരൃം കേന്ദ്ര ഗവൺമെന്റുമായി ചർച്ച ചെയ്യും

ദീർഘിപ്പിക്കുന്നതിന് ഭരണാന്റുമതി നൽകാൻ മന്ത്രിസഭ തീരുമാനിച്ചു പ്രധാൻമന്ത്രി കിസ്ടാൻ പദ്ധതി സമയബന്ധിതമായി ന് പൂർത്തിയാക്കണ്മെന്ന് സംസ്ഥാനങ്ങളോട് കേന്ദ്രം

കടലാക്രമണം രൂക്ഷമായി നാല് ദിവസങ്ങൾക്കുള്ളിൽ മഴയുടെ ശക്തി കുറയുമെന്ന് കാലാവസ്ഥാ വകുപ്പ്

നൽകണമെന്ന് സ്കൂൾ കൂട്ടികളോട് മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന അരുണാചൽ പ്രദേശിൽ കാണാതായ എ

വിമാനത്തിലെ യാത്രക്കാരെല്ലാം മരിച്ചതായി വ്യോമസേന സ്ഥിരീകരിച്ചു മുഖ്യമന്ത്രി അദാനി തിരുവനന്തപൂരം അന്താരാഷ്ട്ര വിമാനത്താവളം അദാനി ഗ്രൂപ്പിന് കൈമാറാനാവില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു വിമാനത്താവളം ഗവൺമെന്റിന് അവകാശപ്പെട്ടതാണ് ഇക്കാര്യം നേരത്തെ കേന്ദ്രത്തെ അറിയിച്ചിരുന്നതാണെന്നും നിയമസഭയിൽ ശ്രദ്ധ ക്ഷണിക്കലിനുള്ള മറുപടിയിൽ അദ്ദേഹം പറഞ്ഞു

വിമാനത്താവളം അദാനി ഗ്രൂപ്പിന് കൈമാറാനുള്ള ശുപാർശ കേന്ദ്രമന്ത്രി സഭ അടുത്തമാസം പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്

ജംഗ്ഷൻ മുതൽപത്ര്യ്പ്പുണിത്തുറ റെയിൽവെ സ്റ്റേഷൻ വരെ കൊച്ചി മെട്രോ പാത ര്ഷ്ട്സ് വൺ ബി ദീർഘിപ്പിക്കുന്ന തിന് ഭരണാനുമതി നൽകും മന്ത്രിസ്ഭായ്ോഗമാണ് തീരുമാനമെടുത്തത്

സഭ ശൈലജ സംസ്ഥാനത്ത് ആസിഡ് ആക്രമണം ലൈംഗിക അതിക്രമം എന്നിവയ്ക്ക് ഇരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും അടിയന്തര സഹായം ലഭിച്ചാലും അവർക്ക് ആശ്വാസ് പദ്ധതി പ്രകാരമുള്ള സഹായത്തിന് അർഹതയുണ്ടാകുമെന്ന് മന്ത്രി കെ

ശിശു സംരക്ഷണ ഓഫിസർമാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇരകൾക്ക് ഒരു ലക്ഷം മുതൽ രണ്ട് ലക്ഷം രൂപ വരെ ഇടക്കാലാശ്വാസമായി ആശ്വാസ് പദ്ധതി പ്രകാരം നല്കുമെന്ന് അനുപ് ജേക്കബിന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായി മന്ത്രി അറിയിച്ചു അഗ്നിശമനം സംസ്ഥാനത്തെ ഫയർ സ്റ്റേഷനുകളിലെ സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു

അഗ്നിബാധ ഭീഷണി ഉള്ള ഹെറിറ്റേജ് കെട്ടിട സമുച്ചയങ്ങൾ നവീകരിക്കാനും സേനയ്ക്ക് ആധുനിക സൌകര്യങ്ങളുള്ള വാഹനങ്ങൾ വാങ്ങുന്നതിനും ഉടൻ നടപടി കൈക്കൊള്ളും

സി

യോഗൃരായ കർഷകരെ പിഎം കിസാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചു

ആലപ്പുഴ ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ കടൽക്ഷോഭത്തിന് ശമനമില്ല മത്സ്യബന്ധനം മുടങ്ങിയതോട്ടു തീരപ്രദേശം പട്ടിണിയിലുമാണ് വിവരങ്ങളുമായി കുടുതൽ ആകാശവാണി ആലപ്പുഴ പ്രതിനിധി ആർ

കാലവർഷക്കെടുതിയെത്തുടർന്ന് കോഴിക്കോട് താലൂക്കിൽ വിവിധ ഇടങ്ങളിലായി പതിനഞ്ച് വീടുകൾക്ക് ഭാഗിക നാശം സംഭവിച്ചു പന്തലായനി വിയൂർ കീഴരിയൂർ എന്നിവിടങ്ങളിലായി മൂന്ന് വീടുകൾക്കും കോടഞ്ചേരി ഈങ്ങാപ്പുഴ പുത്തൂര് എന്നവിടങ്ങളിലായി ഒൻപത് വീടുകൾക്കും ഭാഗിക കേടുപാടുകൾ പറ്റി പന്തലായനി വിയൂർ വില്ലേജുകളെ വേർതിരിക്കുന്ന തോട്ടിലൂടെ കടൽവെള്ളം കയറുന്നതിനാൽ സമീപ് വാസികൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു വടകരയിലും താമരശ്ശേരിയിലും ക്യാമ്പുകൾ പ്രവർത്തിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് തഹസിൽദാർമാർ അറിയിച്ചു മഴ ഇൻട്രോ സംസ്ഥാനത്ത് അടുത്ത നാല് ദിവസത്തിനകം മഴയുടെ ശക്തി കുറയുമെന്ന് തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ ഡോ കെ സന്തോഷ് ആകാശവാണിയോട് പറഞ്ഞു

പിണറായി വിജയൻ പരിസ്ഥിതി സംബന്ധിച്ച വിവിധ വിഷയങ്ങളിൽ ലേഖനമോ കത്തോ ഉപന്യാസമോ പ്രസംഗമോ എഴുതി അയച്ചുനൽകാൻ സ്കൂൾ കുട്ടികളോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഹ്വാനം ചെയ്തു

കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും മുഖ്യമന്ത്രിയുടെ കത്ത് ഓരോ കുട്ടിക്കും നൽകി വരികയാണ്

പി വിഭാഗം കുട്ടികൾക്കും ഹൈസ്ക്കൂൾ ഹയർ സെക്കണ്ടറി വിഭാഗം കുട്ടികൾക്കും പ്രത്യേകം വിഷയങ്ങൾ മുഖ്യമന്ത്രി തന്നെ നിർദേശിച്ചിട്ടുണ്ട്

സൂപ്പർ സ്പെഷ്യാലിറ്റി സീറ്റുകൾക്ക് മെഡിക്കൽ കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരം ലഭിച്ചതായി മന്ത്രി കെ

വന്ധ്യതാ ചികിത്സ വിഭാഗത്തിൽ സീറ്റുകൾ ലഭിക്കാനുള്ള നടപടിക്രമങ്ങൾ അന്തിമഘട്ടത്തിലാണ്

എസ് വൈ പ്രകാരമുളള പ്രസവാനുകൂലൃം ഇതുവരെ ലഭിക്കാത്തവർക്കായി അദാലത്ത് നടത്തും

തെരച്ചിൽ സംഘം വിമാനം തകർന്ന പ്രദേശത്ത് എത്തിയശേഷമാണ് വ്യോമസേന ഇക്കാര്യം സ്ഥിരീകരിച്ചത് മൃതദേഹങ്ങൾ കണ്ടെത്താൻ ശ്രമം തുടരുന്നു

വിമാനത്തിൽ നിന്ന് യാത്രക്കാരെ പുറത്തിറക്കിയിരുന്നു

വയനാട്ടുകാർനായ യാത്രക്കാരനിൽ നിന്നാണ് സ്വർണം പിടിച്ചത് കസ്റ്റംസ്മിന്റെ പാലക്കാട് തൃശ്ശൂർ വിഭാഗങ്ങളാണ് പരിശോധനയ്ക്ക് നേതൃത്വം ന്ൽകിയത് യാത്രക്കാരൻ ദുബായിൽ നിന്ന് ട്രിച്ചി വിമാനത്താവളം വൃഴിയാണ് എത്തിയത്

തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ സർജനെതിരെ നടപടി സ്വീകരി ക്കണമെന്നാണ് കമ്മീഷൻ അധ്യക്ഷൻ ജസ്സിസ്ട്രആൻ്റണി ഡൊമിനിക്കിന്റെ ഉത്തരവ് വി മുരളീധരൻ കേന്ദ്ര വിദേശകാര്യ സഹ്മുന്ത്രി വി മുരളീധരൻ നൈജീരിയൻ പ്രസിഡന്റ് മുഹമ്മദ് ബുഹാരിയുമായി കൂടിക്കാഴ്ച നടത്തി